എയിൽ തിരക്കിട്ട ശ്രമങ്ങൾ തുടങ്ങി

അമേഠിക്ക് പുറമെ വയനാട്ടിലും രാഹുൽ മത്സരിക്കുമെന്ന് മുതിർന്ന പാർട്ടി നേതാവ് എ കെ ആന്റണിയാണ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേ ളനത്തിൽ അറിയിച്ചത് പ്രവർത്തകരുടെ തുടർച്ചയായ അഭ്യർഥനയെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിന് പുറമെ കർണാടകയിലും തമിഴ്നാട്ടിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രാഹുൽഗാന്ധി അവിടങ്ങളിൽ മത്സരി ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലമെന്ന നിലയിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്തൃയിൽ മുഴുവൻ തന്നെ തരംഗം സൃഷ്ടിക്കുമെന്ന് എ

കോൺഗ്രസ് നേതാക്കൾ കൂടിയാലോചിച്ച് എടുത്ത തീരുമാനമാണിതെന്നും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പ്രവർത്തകരിൽ രാഹുലിന്റെ സാന്നിധ്യം ആവ്വേശമാകുമെന്നും ആന്റണി പറഞ്ഞു ഇടതുപക്ഷത്തിനെതിരായ മത്സരമല്ല വയനാട്ടിലേതെന്നും മോദി യുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സ രിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് ഏറ്റവും അനുയോ ജ്യമായ മണ്ഡലമാണ് വയനാടെന്നും ്ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം ഇടതുപക്ഷത്തിന് എതി രെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ബിജെ പിക്കെതിരെയാണ് കോൺഗ്രസിന്റെ മത്സരമെങ്കിൽ അവർ മത്സരി ക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകണമായിരുന്നു ഇടതുപക്ഷത്തെ നേരിടാൻ ആരു വന്നാലും അത് നേരിടാൻ എൽ ഡി എഫിന് കരുത്തുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു രാഹുൽഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിയു മെന്നും അതിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേര ളത്തിൽവന്ന് എൻ

എ മത്സരിക്കുന്ന സീറ്റിൽ മത്സരിക്കുന്നത് കൊണ്ട് അത് ബിജെപിക്കെതിരായ പ്രതീകാത്മകമായ പോരാട്ടമാ കില്ലെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു കേരളത്തിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേ ശമാണ് കോൺഗ്രസ് നൽകുന്നതെന്ന് സിപിഐഎം ജനറൽ സെക്ര ട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു ദേശീയ തലത്തിൽ ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഇടത് മതേതര കക്ഷികൾ പ്രാധാന്യം നൽകുന്നത് ഈ സാഹചര്യ ത്തിനിടയിലാണ് എൽ ഡി എഫിനെതിരെ രാഹുലിന്റെ സ്ഥാനാർത്ഥി ത്വമെന്നും യെച്ചൂരി പറഞ്ഞു വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മുഖ്യമന്ത്രി പിണറായി വിജയന് പരിഭ്രാന്തിയും നിരാശയും സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മതേതര ജനാ ധിപത്യ ശക്തികളുടെ കൂട്ടായ്മ തകർക്കുന്ന നിലപാടാണ് മുഖ്യമ ന്ത്രിയുടേതെന്നും അദ്ദേഹം തിരുവ്വനന്തപുരത്ത് ആരോപിച്ചു രാഹു ലിന്റെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ വിജയം തിളക്കമറ്റതാക്കുമെന്നും വയനാട്ടിൽ ചരിത്രവിജയമുണ്ടാ കുമെന്നും ചെന്നിത്തല പറഞ്ഞു വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് മുന്നണിക്കെ തിരായ മത്സരമല്ലെന്ന് കെ

സ്ഥാനാർഥി പ്രഖ്യാപനം ദക്ഷിണേന്തൃയിൽ കോൺഗ്രസിന് വൻവിജയമുണ്ടാക്കുമെന്ന് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും യു

എഫ് ജയിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് അവകാശപ്പെട്ടു മതേതര ജനാധിപത്യ ഐക്യത്തെ തകർക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സ്വീകരിക്കു ന്നതെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു

മുസ്ലിം ലീഗിനെ ആശ്രയിച്ച് കോൺഗ്രസ് അധ്യക്ഷനെ ജയിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് സിപിഐ എമ്മും കോൺഗ്രസും ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന്റെ സഹായത്തോടെ രാഹുൽഗാന്ധിയെ മത്സരിപ്പിക്കുന്ന തെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു വയനാട്ടിൽ രാഹുൽഗാ ന്ധിയെ ശക്തമായി നേരിടാൻ എൻ

എ തീരുമാനിച്ചിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച തോടെ ശക്തനായ സ്ഥാനാർഥിയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി മുന്നണിയിൽ തിരക്കിട്ട ശ്രമങ്ങൾ ആരംഭിച്ചു വയനാട്ടിലെ എൻ

എ സ്ഥാനാർഥി ആരായിരിക്കുമെന്ന കാര്യ ത്തിൽ ഇന്ന് തന്നെ ്തീരുമാനമുണ്ടാകുമെന്ന് ബി ഡി

എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു

പി ദേശീയ അധ്യ ക്ഷൻ അമിത്ഷായുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും എൻ

എ സ്ഥാനാർഥിയെ തീരുമാനിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ബിഡിജെഎസിന്റെ പൈലി വാത്യാട്ടാണ് വയനാട്ടിലെ എൻ

ബിജെപിയുടെ പ്രമുഖ നേതാക്കളിൽ ആരെയെങ്കിലും വയനാട്ടിൽ മത്സരിപ്പിച്ചേക്കുമെന്ന് സൂചനയുണ്ട് വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കാൻ എത്തിയതിൽ അതി യായ സന്തോഷമുണ്ടെന്ന് ഇന്ത്യൻ യൂനിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതോടെ ആവേശകരമായ മത്സരം വയനാട്ടിൽ ഉണ്ടാകും ജനവികാരം മാനിച്ച തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ത്

വനിതാ മതിലിൽ പങ്കെടുത്തവരിൽ യുവതീ പ്രവേശ നത്തെ എതിർത്തവരും ഉണ്ടായിരുന്നതായി ് അദ്ദേഹം സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി വോട്ടർ ബോധ വത്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു കമ്മ്യൂണിറ്റി റേഡിയോ പ്രധാന വിനിമയോപാധികളിൽ ഒന്നാണെന്ന് സീനിയർ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉമേഷ് സിൻഹ വ്യക്തമാക്കി

മഹാത്മഗാന്ധിയുടെ കുടുംബവുമായി ഒരു ബന്ധവും ഇല്ലാത്ത വരാണ് കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ വിശേഷിപ്പിച്ച ഗാന്ധി കുടുംബമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഗാന്ധി കുടുംബം ഇന്ത്യയിലെ പ്രഥമ കുടുംബമാണെന്നും പ്രസ്താവന കോൺഗ്രസിനകത്തെ പാദസേവാ സംസ്കാരമാണ് വ്യക്തമാക്കു ന്നതെന്നും ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര പീഡനത്തിന് ഇരയായ കുട്ടിയുടെ നില അതീവ് ഗുരുതരമായി തുടരുന്നു കോല ഞ്ചേരി മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹാ യത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ കുട്ടി മരുന്നുകളോട് പ്രതി കരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂടിനും സൂര്യാതപത്തിനും സാധ്യ തയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വയ നാട് ഒഴികെ ് ജില്ലകളിൽ പകൽ താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്നാണ് വിലയിരുത്തൽ

തദ്ദേശ സ്ഥാപ നങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും ജല അതോറിറ്റി യുടെ അംഗീകൃത സ്രോതസ്സുകളിൽ നിന്ന് ശുദ്ധജലം എത്തിക്കു ന്നത് സംബന്ധിച്ചും മാർഗ നിർദേശത്തിൽ വൃക്തമാക്കുന്നുണ്ട് ജല സ്രോതസ്സുകൾ മലിനമാകുന്നത് തടയാൻ പൊലിസ് കാവലും പ്രാദേ ശിക ഭരണകൂടത്തിന്റെയും പൊതുജനങ്ങളുടെയും മേൽനോട്ടവും വേണമെന്നും നിർദേശമുണ്ട് വന്യജീവികൾക്ക് ആവശ്യമായ ജല ലഭ്യത ഉറപ്പാക്കാൻ വനംവകുപ്പിനോട് ദുരന്ത നിവാരണ വകുപ്പ് ആവശ്യപ്പെട്ടു കേരള വികലാംഗ ഫെഡറേഷൻ സംസ്ഥാന സ്യമ്മേളനം കണ്ണൂ രിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സമൂഹ ത്തിലെ ഏറ്റവും പരിഗണനയർഹിക്കുന്ന വിഭാഗമായ വികലാംഗ രുടെ ക്ഷേമത്തിന് ഒട്ടേറെ കാര്യങ്ങൽ ഇനി ചെയ്യേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാന്റിങ് കമ്മിറ്റി ചെയർമാൻ സി ഒ മോഹനൻ അധ്യക്ഷനായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളജിലെ ചികിത്സാ സമയത്ത് അണു മുക്തമായ ചുറ്റുപാടിൽ പാവപ്പെട്ട രോഗികൾക്ക് താമസമൊരുക്കാൻ നിർമിച്ച കെയർഹോം ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഉദ്ഘാടനം ചെയ്യും നിർധനരായ കാൻസർ വൃക്ക രോഗികൾക്കും ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്കും വേണ്ടിയാണ് ഹെൽപിങ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കെയർഹോം നിർമിച്ച ത് നൂറുപേർക്ക് കെയർഹോമിൽ താമസസൌകര്യം ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സിന് സമീപം ഡ്രോൺ കണ്ടെത്തിയ സംഭവത്തിൽ ശ്രീകാര്യം സ്വദേശി നൌഷാദിനെതിരെ പൊലീസ് കേസെടുത്തു ഇന്നലെ രാത്രിയാണ് ഡ്രോൺ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്

കരുണാകരൻ മാസ്റ്റർ അന്തരിച്ചു

ആദ്യകാല ജനതാ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡണ്ട് തിരൂരങ്ങാടി നിയോജക മണ്ഡലം പ്രസിഡണ്ട് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്

സംസ്കാരം ഇന്ന് വൈകീട്ട് തറവാട്ട് വീട്ടുവളപ്പിൽ നടത്തും

കണ്ണൂരിലേക്ക് ദിവസേന മൂന്ന് സർവീ സും ഇൻഡോർ മൈസൂര് എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീ സുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്

ഐപിഎല്ലിൽ ഇന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും വൈകീട്ട് നാലിന് ഹൈദരാ ബാദിലാണ് മത്സരം രാത്രി എട്ടിന് ചെന്നൈയിൽ നടക്കുന്ന മത്സ രത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും പ്രശസ്ത ചെറുകഥാകൃത്ത് അഷ്റഫ് ആടൂർ നിര്യാതനായി

കണ്ണൂർ കാടാച്ചിറയ്ക്കടുത്ത് ആടൂരിലെ വീട്ടിലാ യിരുന്നു അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരു ന്നു കരഞ്ഞ് പെയ്യുന്ന മഴ മരണം മണക്കുന്ന വീട് കുഞ്ഞാമന്റെ പുതപ്പ് തുടങ്ങി ഒട്ടേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അങ്കണം സാഹിത്യ വേദി പുരസ്കാരം പാമ്പൻ മാധവൻ സ്മാരക മാധ്യമ പുരസ്കാ രം യുവകലാസാഹിതി പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാര ങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഖബറടക്കം വൈകുന്നേരം പൊതുവാച്ചേരി ഖബർസ്ഥാനിൽ നടക്കും